പിഴവ് വരുത്ത്രു്ക്തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

വരെ മാറ്റിവയ്ക്കാൻ കേന്ദ്ര മാനവ വിഭവ ശേഷി മന്ത്രാലയം നിർദ്ദേശം നൽകി

സാമ്പത്തിക മേഖല നേരിടുന്ന ഇടിവ് പരിഹരിക്കുന്നതിനുള്ള സാമ്പത്തിക പാക്കേജിൽ ഡോണൾഡ് ട്രംപ് ഒപ്പു വച്ചു

കൂടുതൽ പരിശോധനാ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾ യോഗത്തിൽ ചർച്ചു ചെയ്തു

കോവിഡിനെ പ്രതിരോധിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്ന വിവിധ സംസ്ഥാന സർക്കാരുകൾ ആരോഗ്യ പ്രവർത്തകർ സൈനിക വിഭാഗങ്ങൾ മുനിസിപ്പൽ ജീവനക്കാർ എന്നിവരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു

രോഗിയെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചതായും രോഗവ്യാപനം തടയാനായി ആവശ്യമായ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്

ഈ മാസം എട്ടിന് ഇറ്റലിയിൽ നിന്ന് തിരിച്ചെത്തിയവരായണ് ഇവർ കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ അവലോകന യോഗം കൂടി

മുഖ്യമന്ത്രി ഉദ്ദവ് താക്കറെയുടെ അദ്ധ്യക്ഷതയിൽ ഇന്നലെ മുംബൈയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തത്

അവശ്യ സാധനങ്ങൾ കരുതണമെന്നും ജനങ്ങൾക്ക് നിർദ്ദേശം നല്കിയിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്രമോഹൻ

സി ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഉൾപ്പെടെ മന്ത്രാലയത്തിനു കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കുമാണ് സ്വയംഭരണ പരീക്ഷ മാറ്റി വയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയത് വിദ്യാർത്ഥികൾ അദ്ധ്യാപകർ മാതാപിതാക്കൾ തുടങ്ങിയവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറയുന്നു

പുതുക്കിയ സിബിഎസ്സി ബോർഡ് പരീക്ഷ നടക്കുന്ന അതേ ദിവസങ്ങളിൽ ജെ ഇ

എന്നാൽ പിദ്യാർത്ഥികളും അദ്ധ്യാപകരും മാതാപിതാക്കളും പൂര്യീഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി രമേശ് പൌത്തിയാൽ നിഷാങ്ക് ഉറപ്പു നൽകി ന്യൂസ് ഡസ്ക് ആകാശവാണി

കിഴക്കൻ നാവിക കമാൻഡിലെ ഐ

വിശ്വകർമ്മയിലാണ് ക്യാമ്പ് സജ്ജമാക്കിയിട്ടുള്ളത്

വിമാനത്താവള അധികൃതരുമായും യാത്രക്കാരുമായും മന്ത്രി ആശയവിനിമയം നടത്തി

വിശദാംശങ്ങളിലേക്ക്

കൊറോണ വൈറസ് പകർച്ചാവ്യാധി ഏറ്റവും വിനാശകരമായി ബാധിച്ച രാജ്യങ്ങളിലൊന്നാണ് ജർമ്മനി

രോഗബാന ആരംഭിച്ച ശേഷം ഇത് ആദ്യമായാണ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുന്നത്

കൊറോണ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ട വുഹാനിലും ഇന്നലെ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

സെനറ്റും പ്രതിനിധി സഭയും പാസാക്കിയ നിയമത്തിൽ ഒപ്പു വച്ചതായി യു

സംസ്ഥാന ബസ് അന്തർ സർവ്വീസുകൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനും ഭരണകൂടം ഉത്തരവിട്ടു

ഒരാളുടെ നില ഗുരുതരം

സ്വർണവില കുറഞ്ഞു